ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ പത്ത് മണിയ്ക്കും കോർപ്പറേഷനുകളിൽ പതിനൊന്നരയ്ക്കും ചടങ്ങ്

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ പിരിഞ്ഞു വാർത്തകൾ വിശദമായി മറ്റ് രാജ്യങ്ങൾ വികസിപ്പിച്ച കോവിഡ് വാക്സിനൊപ്പം ഫലപ്രദവും കാര്യക്ഷമവുമായ വാക്സിനായിരിക്കും ഇന്ത്യയിലും വിതരണം ചെയ്യുകയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വാക്സിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും വിതരണം ഇതിന്റെ നടപടിക്രമങ്ങൾ പല ഘട്ടങ്ങളിലായി പുരോഗമിച്ച് വരികയാണെന്നും മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു വാക്സിൻ ഉപയോഗിക്കുന്നവരിൽ നേരിയ പനിയോ വേദനയോ സ്വാഭാവികമാണെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു വാക്സിനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക തയ്യാറെടുപ്പിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ജില്ലാ മെഡിക്കൽ ഓഫീസറും നിരീക്ഷണ സംഘവും സ്ഥലം സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ കൈക്കൊണ്ടു കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷനും മേഖലയിൽ മെഡിക്കൽ ക്യാമ്പും പരിശോധനയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടപ്പാക്കി മാലിന്യം കലർന്ന വെള്ളത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗെല്ല പകരുന്നത് രോഗം റിപ്പോർട്ട് ചെയ്ത വാർഡിന്റെ സമീപ വാർഡിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു വയനാട് ജില്ലയിലും ജാഗ്രത പുലർത്തി വരുന്നുണ്ട് ദ്ദേ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ രാവിലെ നടക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങ്

കോർപ്പറേഷനുകളിൽ പതിനൊന്നരയ്ക്കാണ് ചടങ്ങ് കോർപ്പറേഷനുകളിൽ ജില്ലാ കലക്ടർമാർ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകും കോവിഡ് സാഹചര്യത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്

അംഗങ്ങളിൽ കോവിഡ് ബാധിച്ചവരോ ക്വാറന്റൈനിൽ കഴിയുന്നവരോ ഉണ്ടെങ്കിൽ പി

ഇ കിറ്റ് ധരിച്ച് ഏറ്റവും ഒടുവിൽ അവർക്കും സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ് പുതിയ അംഗങ്ങളിൽ ഏറ്റവും മുതിർന്നയാൾക്ക് ജില്ലാ കലക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും തുടർന്ന് മറ്റ് അംഗങ്ങളെ ഡിവിഷൻ ക്രമനമ്പർ പ്രകാരം മുതിർന്ന അംഗം സത്യപ്രതിജ്ഞ ചെയ്യിക്കും

ദേഴ രാജ്യത്തെ സമരം ചെയ്യുന്ന കർഷകരോട് അടുത്തവട്ടം ചർച്ചയ്ക്ക് ദിവസം നിശ്ചയിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഇക്കാര്യം സംബന്ധിച്ച് കർഷക സംഘടനകൾക്ക് കൃഷി മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ കത്ത് നൽകി

കേന്ദ്രം കൊണ്ടുവന്ന കാർഷിക നിയമങ്ങളിലെ പരിഷ്കരണ നിർദ്ദേശങ്ങൾ കർഷക സംഘടനകൾ തള്ളിയതിനെത്തുടർന്ന് ആറാംവട്ട ചർച്ച റദ്ദാക്കിയിരുന്നു രുര കാർഷിക നിയമങ്ങൾക്കെതിരെ ഇപ്പോൾ നടക്കുന്ന കർഷക സമരം രാഷ്ട്രീയപ്രേരിതമാണെന്ന് കേന്ദ്രമന്ത്രി ജനറൽ വി കെ സിംഗ് കുറ്റപ്പെടുത്തി യഥാർത്ഥ കർഷകർ പുതിയ കാർഷിക നിയമങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുകയാണെന്ന് അദ്ദേഹം തഞ്ചാവൂരിൽ പറഞ്ഞു

കാർഷികോല്പന്നങ്ങളുടെ താങ്ങുവില സംവിധാനം തുടരും കരാർ കൃഷി കർഷകർക്ക് ഗുണപ്രദമായിരിക്കുമെന്നും കൃഷിക്കാരുമായി നടത്തിയ ആശയ വിനിമയത്തിൽ വി കെ സിംഗ് വിശദീകരിച്ചു കാർഷിക പരിഷ്കരണ നിയമങ്ങളെ എതിർത്ത് സമരം ചെയ്യുന്നവർ ലഡാക്ക് ഉൾപ്പെടെ മേഖലകളിൽ സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കുറ്റപ്പെടുത്തി സമരത്തിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷം സ്വാർത്ഥ താല്പര്യങ്ങളോടെ കർഷകരെ വഴിതെറ്റിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു പറ്റ്നയിൽ കർഷകരുമായി സംവദിക്കുകയായിരുന്നു മന്ത്രി രുര പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ കർഷകർ പുതിയ കാർഷിക നിയമങ്ങൾക്ക് പിന്തുണ അറിയിച്ച് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർക്ക് കത്ത് നൽകി നിയമത്തിൽ ഏതാനും ഭേദഗതികൾ വരുത്താൻ അഭ്യർത്ഥിച്ച് ഹിന്ദ് മസ്ദൂർ കിസാൻ സമിതി നൽകിയ നിവേദനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതുവരെ ഏഴ് കർഷക സംഘടനകൾ കാർഷിക നിയമങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്

ശാസ്ത്ര മന്ത്രാലയം ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെയും വിജ്ഞാന ഭാരതിയുടെയും സഹകരണ ത്തോടെയാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്

ഹരിയാനയിൽ നടത്താനിരിക്കുന്ന കായികമേളയിൽ കേരളത്തിന്റെ കളരിപ്പയറ്റും പരമ്പരാഗത കായിക ഇനങ്ങളായ താങ് ട ഗാദ്ക മല്ലഖമ്പ എന്നിവയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഡൽഹിയിൽ അറിയിച്ചു രുര ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോട്ടിംഗ് ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ പിരിഞ്ഞു

തുടർച്ചയായ മൂന്നാം തവണയാണ് കേരളം വിജയികളാവുന്നത് വനിതാ വിഭാഗം ലൂസേഴ്സ് ഫൈനലിൽ തെലങ്കാനയെ പരാജയപ്പെടുത്തി കേരള വനിതാ ടീം മൂന്നാം സ്ഥാനം നേടി

രുര എട്ട് നൂറ്റാണ്ട് ഇടവേളയ്ക്ക് ശേഷം സൌരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹസംഗമം ഇന്ന് വൈകിട്ട് ദൃശ്യമാകും വ്യാഴവും ശനിയും ഭൂമിയുടെ നേർരേഖയിലെത്തുന്ന സംഗമം അസ്മയത്തിന് ശേഷം കാണാനാവും ആകാശത്ത് തെക്ക് പടിഞ്ഞാറായി ആദ്യം വ്യാഴവും അല്പസമയത്തിനകം തൊട്ടടുത്ത് ശനിയും തെളിഞ്ഞുവരും

പെരിന്തൽമണ്ണ സ്വദേശികളായ ആദിൽ ഇർഷാദ് എന്നിവരാണ് കസ്റ്റഡിയിൽ കീഴടങ്ങാൻ എത്തുമ്പോൾ കളമശ്ശേരി പൊലീസാണ് ഇവരെ കസ്റ്റിഡിയിലെടുത്തത്